ത തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി

വാർത്തകൾ വിശദമായി ലോകത്ത് പല രാജ്യങ്ങളിലും കോവിഡ് മഹാമാരി അതീവ മോശം നിലയിലേക്ക് നീങ്ങുകയാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി

പുതിയ കോവിഡ് കേസുകളിൽ പകുതിയിലേറെയും അമേരിക്കയിലാണ് കോവിഡ് പ്രതിരോധ കാര്യത്തിൽ നിരവധി രാജ്യങ്ങൾ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നും ഒട്ടേറെ ഗവൺമെന്റുകളും ജനങ്ങളും കോവിഡിനെ ഗൌരവത്തിലെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ദരദ ഏത് ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാലും കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനം മുന്നിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രോഗ വ്യാപനം തടയുന്നതിലും മരണ നിരക്ക് നിയന്ത്രിക്കുന്നതിലും ആവശ്യത്തിന് ടെസ്റ്റുകൾ നടത്തുന്നതിലും കേരളം മുന്നിൽ തന്നെയാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി

ഇതുവരെ പിന്തുടർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സഹകരണത്തോടെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു കൊണ്ടുപോകാനായാൽ ഇതു തടയാൻ കഴിയും സംസ്ഥാനത്ത് കോവിഡ് മരണ നിരക്ക് ലോക ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്

തീരമേഖലയിലെ ചില പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഫലപ്രദമായി നടപ്പാക്കും തീര പ്രദേശങ്ങളിലെ രോഗവ്യാപനം തടയാൻ പ്രത്യേക കർമ്മ പദ്ധതി തയാറാക്കിയിട്ടുണ്ട്

ഈ മഹാമാരിയെ അതിന്റേതായ ഗൌരവത്തിൽ ചിലർ കാണുന്നില്ല എന്ന പ്രശ്നമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രുമ കോവിഡ് ബാധിതരുടെ എണ്ണം ഗണ്യമായി വർധിച്ച ആലപ്പുഴ ജില്ലയിൽനിന്ന് കോട്ടയത്തേക്കും തിരിച്ചും യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ അതിർത്തിയായ തണ്ണീർമുക്കം ബണ്ട് മേഖലയിൽ റവന്യൂ പോലീസ് ആരോഗ്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അടങ്ങിയ സംയുക്ത സംഘത്തെ ഇന്നു മുതൽ പരിശോധനയ്ക്കായി നിയോഗിക്കും രണ്ടു ജില്ലകളിലേക്കും ബോട്ടുകളിലും വള്ളങ്ങളിലും യാത്ര ചെയ്യുന്നതിന് പത്തു ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രുഭ കണ്ണൂർ ജില്ലയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ച ദിവസമായിരുന്നു ഇന്നലെ

നാല് അഗ്നി അ രക്ഷാ സേനാംഗങ്ങൾക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചതോടെ കൂത്തുപറമ്പ് അഗ്നി രക്ഷാ സേന ഓഫീസ് അടച്ചു രുദ കണ്ണൂർ കന്റോൺമെന്റ് ഏരിയയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ലോക്ക് ഡൌൺ പ്രഖ്യാപിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു ജില്ലയിലെ കുന്നോത്ത്പറമ്പ് ചിറ്റാരിപ്പറമ്പ് പാനൂർ കോളയാട് അഞ്ചരക്കണ്ടി കൂത്തുപറമ്പ ചൊക്ലി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡ് പൂർണമായും അടിച്ചിടാനും കലക്ടർ ഉത്തരവിട്ടു കണ്ണൂർ ആയിക്കര ഹാർബറും ആയിക്കര മത്സ്യ മാർക്കറ്റും അടച്ചിടും

എടപ്പാൾ വട്ടംകുളം തവനൂർ വെളിയങ്കോട് ഒഴികെ പഞ്ചായത്തുകളിൽ പരിശോധന പൂർത്തിയായി

എടപ്പാളിൽ മുന്നൂറും വട്ടംകുളത്ത് ആയിരത്തോളവും സാമ്പിളുകൾ ശേഖരിക്കാനുണ്ട് ദേദ കൊല്ലംജില്ലയിലെ ചവറ പന്മന ഗ്രാമപഞ്ചായത്തുകളിൽ തീവ്ര ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

രുമ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ തിരുവണ്ണൂർ ചാലപ്പുറം വാർഡുകളും വടകര മുൻസിപ്പാലിറ്റിയിലെ പരവന്തല അടക്കാത്തെരു ചോളംവയൽ കോട്ടപ്പറമ്പ് കക്കുഴിയിൽ കുഴിച്ചാലിൽ സിദ്ധാശ്രമം കണ്ണംകുഴി പുതിയാപ്പ വാർഡുകളും തലക്കുളത്തൂർ കൊക്കഞ്ഞാത്ത് ഗ്രാമപഞ്ചായത്തിലെ ചിറവളപ്പിൽ വാർഡും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുട്ടോത്ത് കുട്ടോത്ത് സൌത്ത് വാർഡുകളും കണ്ടെയ്മെന്റ്സോണായി ജില്ലാ കലക്ടർ പ്രഖ്യാപിച്ചു ദര കൊയിലാണ്ടി മാർക്കറ്റിൽ ജൂൺ അഞ്ചിന് പച്ചക്കായ ഇറക്കി മടങ്ങിയ ലോറി ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മാർക്കറ്റിലെ ചുമട്ട്തൊഴിലാളികൾ ഉൾപ്പടെ പത്തോളം പേരെ നിരീക്ഷണത്തിലാക്കി രുമ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് അടിയന്തിര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിക്കും പ്രദേശത്തെ ആരോഗ്യ കാര്യങ്ങൾക്കായി പ്രത്യേക മൊബൈൽ ടീമിനെയും നിയോഗിക്കും

വാർഡിൽ കർശനമായ ലോക് ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

രുമ വയനാട് ജില്ലയിൽ നിന്നു കർണാടകത്തിലേക്ക് പോകുന്ന ചരക്കു വാഹനങ്ങൾ ചരക്ക് എടുത്ത ഉടനെ തിരികെ പോരണമെന്ന് ചാമരാജ്നഗർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചതായി ജില്ലാ കലക്ടർ ഡോ

ഒരു കാരണവശാലും അന്യസംസ്ഥാനങ്ങളിൽ അനാവശ്യമായി നിൽക്കാൻ പാടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

സ്വർണക്കടത്ത് കേസിലുൾപ്പെട്ട സ്ത്രീയുമായി സൌഹൃദമുണ്ടെന്നതിനാലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരനെ മാറ്റി നിർത്തിയത് അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുവന്നാൽ അതിലും കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതി സ്വപ്ന സുരേഷിന് ഐ ടി വകുപ്പിന് കീഴിലെ സ്പേസ് പാർക്കിൽ കരാർ നിയമനം ലഭിച്ചതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രുമ സ്വർണ്ണകള്ളക്കടത്ത് കേസിലെ പ്രതികളുമായി അടുത്തബന്ധം സൂക്ഷിക്കുന്ന മുൻ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിനെ മുഖ്യമന്ത്രി ഇപ്പോഴും സംരക്ഷിക്കുന്നത് ദുരൂഹത വർധിപ്പിക്കുന്നുവെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഓരോ ദിവസവും ശിവശങ്കറിനെതിരെ കൂടുതൽ ആരോപണങ്ങളാണ് ഉയരുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശിവശങ്കറിനെ പിണക്കിയാൽ മുഖ്യമന്ത്രി അപകടത്തിലാകുമോയെന്ന് ഭയക്കുന്നുവെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു രുമ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ യാത്രക്കാരനിൽ നിന്ന് ഇന്നലെയും സ്വർണ്ണം പിടികൂടി

കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചാണ് പരീക്ഷ ഹോട്ട്സ്പോട്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരീക്ഷാകേന്ദ്രങ്ങൾ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തോടെയാണ് വർധന നടപ്പു സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ചു ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു രാമ കാർഷിക മേഖലയിൽ തൊഴിൽ കണ്ടെത്തുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾ ചെയ്യേണ്ടതെന്നും അതിന് എല്ലാവിധ സഹായവും ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി എ

രുര കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും കായിക യുവജന വകുപ്പ് മന്ത്രിമാരുമായി ഇന്നും നാളെയും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തും കായികരംഗത്തിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനതലത്തിൽ തന്നെ പദ്ധതികൾ ആവിഷ്ക്കരിക്കുന്നത് ചർച്ചാ വിഷയമാകും നാഷണൽ സർവ്വീസ് സ്കീം നെഹ്റു യുവ കേന്ദ്ര സംഗതനുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും ഖേലോ ഇന്ത്യ മത്സരങ്ങളും യുവനജോത്സവങ്ങളും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ നടത്താനുള്ള പദ്ധതികളും യോഗം തീരുമാനിക്കും